തീർപ്പാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച മാർഗരേഖ കോടതി അംഗീകരിച്ചു ഒന്നിലധികം വോട്ട് ഉള്ളവർ സത്യവാങ്മൂലം നൽകണം

പുറത്തു വിടുമെന്ന് പ്രതിപ്പിച്ച് നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭാ തെരഞ്ഞെട്ടുപ്പിന് അഞ്ച് ദിവസം മാത്രം ന് ബാക്കി നിൽക്കെ ക്രേള്ം പ്രചാരണ ചൂടിൽ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണം തുടരുന്നു

ബ്രാഞ്ച് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി

സ്ഥിരീകരിച്ചു

കോവിഡ് വാക്സിൻ നൽകി തുടങ്ങും ഓൺലൈൻ മുഖേനയും ആശുപത്രിയിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്തും വാക്സിൻ സ്വീകരിക്കാം

ഇരട്ട വോട്ട് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച മാർഗരേഖ ഹൈക്കോടതി അംഗീകരിച്ചു ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ട് ഉള്ളവർ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ സത്യവാങ്മൂലം നൽകണം വോട്ടെടുപ്പ് സുഗമമാക്കാൻ ആവശ്യമെങ്കിൽ കേന്ദ്ര സേനയെ വിന്യസിക്കാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു

പോസ്റ്റൽ വോട്ടുകളുടെ സംരക്ഷണം ഉറപ്പു വരുത്തണമെന്നും ഇവ സ്ട്രോങ്ങ് റുമിൽ സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു നടപടികൾ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കണം പോസ്റ്റൽ ബാലറ്റ് പെട്ടികൾ സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുകളുടെയോ സാനിധ്യത്തിൽ വേണം സീൽ ചെയ്യാന്നെന്നും കോടതി നിർദ്ദേശിച്ചു

ഹർജിയിലെ കാര്യങ്ങൾ ഭാഗികമായി അംഗീകരിച്ച കോടതി ഇരട്ട വോട്ടുള്ളവരുടെ വോട്ട് മൂർപ്പിപ്പിക്കണം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ നിരസിച്ചു വോട്ടർ പട്ടിക പുനപരിശോഗ്രിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു

എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പട്ടിക പരിശോധിക്കാം വോട്ടുള്ളവരിൽ നിന്നും സത്യവാങ്മൂലം വാങ്ങണമെന്ന നിർദ്ദേശത്തിന്റെ പ്രായോഗികതയിലും പ്രതിപക്ഷ നേതാവ് സംശയം പ്രകടിപ്പിച്ചു

ഏപ്രിൽ ആറിന് നടക്കുന്ന വോട്ടെടുപ്പിന് ഇനി അഞ്ച് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് പരസ്യ പ്രചാരണം നാല് ദിവസം കൂടി തുടരാം

രാജൃത്തിന്റെ ഭാവി ശോഭനമാക്കുന്ന സ്ഥാനാർത്ഥികളും പ്രകടന പത്രികയുമാണ് യുഡിഎഫിന്റേതെന്ന് അവർ ചാലക്കുടിയിൽ പറഞ്ഞു

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണം നടത്തി ജില്ലാപരൃടനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മുഖൃമന്ത്രി ധർമടത്ത് പ്രചാരണത്തിനെത്തിയത് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും ഇന്ന് തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മറ്റന്നാൾ എൻഡിഎയുടെ പ്രചാരണത്തിനായി കേരളത്തിലെത്തും കോന്നിയിലും തിരുവനന്തപുരത്തുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആറ്റിങ്ങൽ ആറന്മുള തുടങ്ങി നാല് മണ്ഡലങ്ങളിൽ നാളെ പ്രചാരണം നടത്തും കഴക്കൂട്ടം കാട്ടാക്കട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇന്ന് സംസ്ഥാനത്തെത്തും

യിൽ ചേർന്ന മുതിർന്ന നേതാവ് പി

ചാക്കോ എൽ ഡി

കോവളത്ത് നടക്കുന്ന പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും

വിജയരാഘവൻ അഞ്ച് വർഷം ഏറ്റവും മാത്യകാ പർമായി ഭരിച്ച സർക്കാരാണ് ഇടത് സർക്കാരെന്ന് എ വിജയരാഘവൻ വൂടികൃരയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഭരണനിർപ്പ്ഹണത്തെ കുറിച്ചോ ബദൽ പദ്ധതിയെ കുറിച്ചോ പറയാതെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മുഖ്യശത്രുവായി ഇടതുപക്ഷത്തെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

എം ശ്രമിക്കുന്നതെന്ന് കെ

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ

നിർഭയമായി വോട്ടു ചെയ്യാനുള്ള അവകാശമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കണ്ണൂർ തിലാന്നൂരിൽ വാർത്താലേഖകരോട് പറഞ്ഞു സുരേന്ദ്രൻ കേന്ദ്ര സർക്കാർ സ്കൂൾ കുട്ടികൾക്ക് സൌജനൃമായി നൽകിയ അരിയാണ് കേരളത്തിൽ കിറ്റാക്കി വിതരണം ചെയ്യുന്നതെന്ന് ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ സൂരേന്ദ്രൻ തപാൽ വോട്ടുകൾ വൃാപകമായി അട്ടിമറിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ലൌ ജിഹാദ് സംബന്ധിച്ചു ക്രിസ്ത്യൻ സഭയുടെ ആശങ്കകൾ പങ്കുവച്ച ജോസ് കെ മാണിയുടെ വായടപ്പിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ജില്ലകളിലൂടെ

നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മൂലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് ഇവീട്ട് നടക്കുന്നത് തികച്ചും പ്രവചനങ്ങൾക്ക് അതീതമാണ് ജില്ലയുടെ രാഷ്ട്രീയ സ്ഥിതി മലപ്പുറത്തെ കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു

രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർഥികളും വൃക്തികളും നൽകുന്ന പരസ്യങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാണ് മറ്റ് ദിവസങ്ങളിൽ ഇ പേപ്പർ ഒഴികെ ദിനപ്പത്രങ്ങളിലെ പരസൃത്തിന് മുൻകൂർ അനുമതി ഒഴിവാക്കിയിരുന്നു

ഇതിനായി നിയോജക മണ്ഡലം അടിസ്ഥാനമാക്കി പ്രത്യേകം കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

സ്റ്റാച്യു ജംഗ്ഷനിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ വഴുതക്കാട് വിമൻസ് കോളേജിലെ അൻപതോളം വിദ്യാർത്ഥിനികളാണ് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത്

അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഇ

യുടെ ആവശ്യം കോടതി നിരാകരിച്ചു എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശം നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യൽ തുടങ്ങിയ നടപടികളും പാടില്ല

തിരക്ക് ഒഴിവാക്കാൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് വാക്സിനെടുക്കാൻ എത്തുന്നതാണ് നല്ലതെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു

എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓൺലൈൻ രജിസ് ട്രേഷനിലൂടെ ഇഷ്ടമുള്ള ആശുപത്രിയും ദിവസവും തെരഞ്ഞെടുക്കാവുന്നതാണ്

പരമാവധി ആളുകൾക്ക് വാക് സിൻ നൽകുന്നതിനായി വരും ദിവസങ്ങളിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം വർധിപ്പിക്കുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ആശുപത്രികൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ എന്നിവടങ്ങളിൽ വാക്സിനേഷൻ സൌകര്യം ലഭ്യമാണ് പ്രതിദിനം രണ്ടരലക്ഷം പേർക്ക് വാക്സിൻ നൽകാനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്

സി സിയ്ക്ക് ആവശ്യമായ സാമ്പത്തിക ഭദ്രതയും വിശ്വാസ്യത്തയുമില്ലെന്നും കമ്പനിയുടെ നിർദ്ദേശങ്ങൾ സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി എന്നും വ്യവസായ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ പള്ളിപ്പുറം മെഗാ ഫുഡ്പാർക്കിൽ കമ്പനിക്ക് ഭക്ഷ്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഭൂമി അനുവദിച്ച നടപടിയും ഇതിനോടൊപ്പം റദ്ദാക്കിയിരുന്നു പാലാ എൽ ഡി എഫ് ഭരിക്കുന്ന പാലാ നഗരസഭയിൽ ഭരണപക്ഷ കൌൺസിലർമാർ തമ്മിൽ ഇന്ന് വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി കേരളാ കോൺഗ്രസ് എം കൌൺസിലർ ബൈജു കൊല്ലംപറമ്പിലിനും സി പി എം അംഗം ബിനു പുളിക്കക്കണ്ടത്തിലിനും മർദ്ദനമേറ്റതായാണ് പരാതി

ഒന്നാം പ്രതി ബിജു രണ്ടാം പ്രതി ഷംസുദ്ദീൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് ജീവപര്യന്തം തടവിന് വിധിച്ച മഞ്ചേരി കോടതിയുടെ ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി

കുളക്കട മാവടിയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കാരച്ചടങ്ങുകൾ നടന്നത്

വയനാട് തലപ്പുഴ സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥികളായ ആനന്ദും മുഹ്സിനുമാണ് മരിച്ചത് സ്കൂളിലെ പന്ത്രണ്ടോളം കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കവെയാണ് അപകടം

മറ്റന്നാളാണ് ദുഃഖവെള്ളി

പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശബ്ദ കോലാഹലങ്ങൾക്ക് അവധി നൽകി ഭവന സന്ദർശനം നടത്താനാണ് മുന്നണികൾ ലക്ഷ്യമിടുന്നത് കുടിവെള്ള പ്രശ്നം വൈപ്പിനിലെ കുടിവെള്ളമില്ലാത്ത് മേഖലയിൽ ടാങ്കറുകളിൽ വെള്ള്മെത്തിക്കാൻ എറണ്ടാക്കുളം ജില്ലാ കളക്ടർ എസ് സുഹാസ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മിർദ്ദേശം നൽകി പ്രദേശത്തെ ആറ് പഞ്ചായത്തുകളിലെ കൂടിപ്പെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കുടിവെള്ളമില്ലാത്തതിന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കളക്ടർ യോഗത്തിൽ നിർദ്ദേശിച്ചു

കൊല്ലത്ത് നിന്ന് പുറപ്പെടേണ്ട ചെന്നൈ എഗ്മോർ സ്പെഷ്യൽ ഏഴ് മണിക്കൂർ വൈകിയാവും പുറപ്പെടുക

സ്വർണ്ണ വ്യീലയിൽ തുടർച്ചയായി ഇടിവ് തുടരുന്നു

മത്സ്യത്തൊഴിലാളി ജാഗ്രത തമിഴ്നാട് തീരത്തും ഗൾഫ് ഓഫ് മാന്നാർ കോമോറിൻ എന്നീ സമുദ്ര ഭാഗങ്ങളിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്നാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന്ത്തിന് തടസ്സമില്ല